കൊച്ചിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

വളർച്ചയ്ക്കുള്ള നടപടികളാണ് ക്രെന്ദ്രസർക്കാർ സ്വീകരിച്ചതെന്ന് ധനമന്ത്രി നിർമ്മല്ലാ സീതാരാമൻ

മോശം തുടക്കം

കൊച്ചിയിൽ ബി

സി എല്ലിന്റെ പ്രൊപിലീൻ ഡെറിവേറ്റീവ് പെട്രോ കെമിക്കൽ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്നതോടൊപ്പം വിവിധ വികസന പദ്ധതികൾക്കും പ്രധാന്മന്ത്രി തുടക്കം കുറിക്കും

ബോൾഗട്ടിക്കും വില്ലിംഗ്ടൺ ദ്വീപിനുമിടയിൽ രണ്ട് പുതിയ റോൾ ഓൺ റോൾ ഓഫ് കപ്പലുകൾ ദേശീയ ജലപാത ദ ൽ വിന്യസിക്കും കൂടാതെ കൊച്ചി തുറമുഖത്ത് അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ സാഗരിക പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും കൊച്ചി തുറമുഖത്ത് ദക്ഷിണ കൽക്കരി ബെർത്തിന്റെ പുനർനിർമാണത്തിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നടത്തും

മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര രാജീവ് കുമാർ എന്നിവരും ് മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് വൈകിട്ടോടെ സുരക്ഷാമുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും എസ്പിമാരുമായും കൂടിക്കാഴ്ച ് നടത്തും

വൈകിട്ട് ചീഫ് സെക്രട്ടറി ് ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയശേഷം കമ്മീഷൻ മാധ്യമങ്ങളോടും സംസാരിക്കും

രാജ്യസഭ പാസാക്കിയ ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലും ലോക്സഭയിൽ പരിഗണിച്ചു

വോയ്സ് സമ്പദ്ഘടനയുടെ പ്രതിസന്ധിയുണ്ടാക്കിയ വെല്ലുവിളി ഒരു അവസരമായി കണക്കാക്കി സാമ്പത്തിക മേഖലയുടെ ദീർഘകാല വളർച്ചയ്ക്കുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞു ലോകത്തെ ഏറ്റവും മികച്ച സമ്പദ്ഘടനയായി രാജ്യത്തെ മാറ്റാൻ സർക്കാരിന്റെ വിവിധ നയസംരംഭങ്ങൾ സഹായിക്കുമെന്നും അവർ പറഞ്ഞു വിവിധ പദ്ധതികൾക്കുള്ള ബജറ്റ് വകയിരുത്തലിൽ കുറവു വന്നിട്ടുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ബജറ്റിലെ വൃവസ്ഥകൾ ശരിയായി മനസ്സിലാക്കാത്തതിനാലാണെന്ന് ധനമന്ത്രി വ്യക്തമാക്കി

എം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആരോഗൃ പ്രവർത്തകർക്കുള്ള വാക്സിനേഷന്റെ രണ്ടാമത്തെ ഡോസ് ഇന്ന് മുതൽ നൽകിത്തുടങ്ങി

നിലവിൽ എറണാകളം പത്തനംതിട്ട ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ളത്

സ്പഷ്ടമായ പ്രഭാവം ഉണ്ടാക്കാൻ കഴിയുന്ന ഉത്തമ മാധ്യമമാണ് റേഡിയോയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു റേഡിയോയുടെ പ്രത്യക്ഷ പ്രഭാവം വൃക്തിപരമായി അനുഭവപ്പെട്ടിട്ടുള്ളതായും മൻ കി ബാത് പ്രക്ഷേപണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു റേഡിയോ ശ്രോതാക്കളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ചുള്ള ആശംസാ സന്ദേശത്തിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ ട്വിറ്ററിൽ കുറിച്ചു

മൂൻകൂട്ടി ഓൺലൈനായി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനം

ടി നഷ്ടപരിഹാര കമ്മിയുടെ പതിനഞ്ചാമത് ഗഡുവായി ആറായിരം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നൽകിയതായി കേന്ദ്ര ധനമന്ത്രാലയം

അരുണാചൽ പ്രദേശ് മണിപ്പൂർ മിസോറാം നാഗാലാൻഡ് സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി നടപ്പാക്കിയ വകയിൽ റവന്യൂവിൽ ന്യൂനത വന്നിട്ടില്ലയെന്നും ധനമന്ത്രാലയം വൃക്തമാക്കി

തിങ്കളാഴ്ച് മുതൽ പുതിയ കോച്ചുകളോടു കൂടിയ അഗർത്തല പ്രത്യേക രാജധ്ാനി ട്രെയിൻ ഓടി തുടങ്ങും തേജസ് സ്തീപർ കോച്ചുകളോടു കൂടിയ രാജധാനി എക്സ്പ്രസ് രാജ്യ തലസ്ഥാനത്തേക്കുള്ള യാത്ര കൂടുതൽ മികച്ചതാക്കുമെന്ന് മന്ത്രാലയം പറഞ്ഞു

ഇതിന് മുന്നോടിയായി സാമാജികർക്കുള്ള ത്രിദിന സാങ്കേതിക പരിശീലന പരിപാടി ഇന്നലെ ആരംഭിച്ചു

ശുഭ്മാൻ ഗിൽ ചേതേശ്വർ പൂജാര ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത്

എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈ എഫ്